ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ശ്രുതി തരംഗം പദ്ധതിക്ക് എട്ട് കോടി രൂപ്പ് അനുവദിച്ചതായി ആരോഗൃമന്ത്രി കെ

നിപ ബാധിച്ച വിദ്യാർത്ഥിയുടെ ആരോഗൃ നിലയിൽ ന് പുരോഗതി രോഗ്ലീ പ്രസഹായമില്ലാതെ നടക്കാൻ തുടങ്ങിയതായി ആശുപത്രി അധികൃതർ

കൊലപ്പെടുത്തിയ കേസിലെ ആദ്യ മൂന്ന് പ്രതികൾക്ക് ജീവപരൃന്തം മൂന്ന് പേർക്ക് അഞ്ച് വർഷം തടവ് ശിക്ഷ വിധിച്ചു

വിരമിച്ചു

സുനിൽകുമാർ നിയമസഭയെ അറിയിച്ചു

കർഷകരുടെ രണ്ട് ലക്ഷം രൂപവരെയുള്ള എല്ലാ കടങ്ങളും എഴുതിത്തള്ളുന്നത് പരിഗണിക്കുന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ കർഷക ആത്മഹതൃയ്ക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന അടിയന്തിര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തെ നയങ്ങളാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നും സർഫാസി നിയമം ബി ജെ പി ഗവൺമെന്റാണ് കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തുനിന്നും ഐ

ബാലകൃഷ്ണനാണ് അടിയന്തിര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് സഹകരണ മേഖലയിൽ നിന്ന് സർഫാസി നിയമം ഒഴിവാക്കുമെന്ന് പ്രശ്നത്തിൽ ഇടങ്കപ്പട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അടിയുന്തര്യ്ക്ക് പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രിയിപ്ക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി

ശൈലജ പറഞ്ഞു ഒരു ഗുണഭോക്താവിന് അഞ്ചരലക്ഷം രൂപ വരെ ചെലവ് ചെയ്ത് നടപ്പാക്കുന്ന ഈ പദ്ധതി പൂർണമായും സൌജന്യമാണ് നേരത്തെ ഒരു ചെവിയിൽ മാത്രമായിരുന്നു കോക്ലിയർ ഇംപ്ലാന്റ് നടത്തിയിരുന്നത് വിദഗ്ധാഭിപ്രായത്തെ തുടർന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരേ സമയം രണ്ട് ചെവികൾക്കും ഇംപ്ലാന്റേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പാക്കുന്നതിന് എം പാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിൽ സൌകര്യപ്രദമായവ ഗുണഭോക്താവിന് തെരഞ്ഞെടുക്കാവുന്നതാണ്

ഇദ്ദേഹം പരസഹായമില്ലാതെ നടന്നു തുടങ്ങി അതിനിടെ നിപ രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരാളെ മെഡിക്കൽ കോളേജിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചു

ഇവരുടെ നില തൃപ്തികരമായി തുടരുന്നു

മറ്റ് മൂന്ന് പ്രതികൾക്ക് അഞ്ച് വർഷം തടവും ശിക്ഷ വിധിച്ചു പത്താൻകോട്ട് പ്രത്യേക വിചാരണ കോടതിയുടേതാണ് വിധി

രണ്ട് പോലീസുകാർ ഉൾപ്പെടെ ആറ് പേരാണ് കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഒരാളെ കോടതി വെറുതെ വിട്ടു

പ്രതികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായില്ലെന്ന വാദം നില നിൽക്കുന്നതിനാൽ ഇയാളുടെ വിചാരണ ഇതുവരെ നടന്നിട്ടില്ല

രവീന്ദ്രനാഥ്

വെള്ളിയാഴ്ച്ചു വരെയാണ് വാരാചരണം റോഡപകടങ്ങൾ കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്ന് പടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത മന്ത്രി എ

ശശീര്ദ്രൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ പ്രതിജ്ഞ റോപ്പ് സുരക്ഷാ കമ്മീഷണർ എൻ

റോഡ് സുരക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഇൌ വാരാചരണത്തിന്റെ ലക്ഷ്യമെന്ന് റോഡ് സുരക്ഷാ അതോറിറ്റി കമ്മ്യൂണിക്കേഷൻസ് ആന്റ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ആർ

പുലർച്ചെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഔദ്യോഗിക ബഹുമതികൾ ഒഴിവാക്കിയായിരുന്നു സംസ്ക്കാരം

ഇന്ത്യൻ നാടക വേദിക്കും സിനിമയ്ക്കും സാഹിത്യത്തിനും വിലപ്പെട്ട സംഭാവനകൾ നൽകിയ കലാകാരനായിരുന്നു ഗിരീഷ് കർണാട് നാടകൃത്തായി തിളങ്ങിയ അദ്ദേഹം അഭിനേതാവെന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചു

പത്മഭൂഷ്ട്ൺ ജ്ഞാനപീഠം കാളിദാസ സമ്മാൻ തുടങ്ങിയ ഉന്നത പ്രൂപുരിസ്കാരങ്ങൾ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു മലയ്ക്കാ്ളത്തിൽ മൂന്ന് ചിത്രങ്ങളിൽ ഗിരീഷ് കർണാട് അഭിനയിച്ചിട്ടുണ്ട്

ആറാഴ്ചത്തേക്ക് തൽസ്ഥിതി തുടരാനാണ് സുപ്രീംകോടതിയുടെ അവധിക്കാല ബഞ്ച് ഉത്തരവിട്ടത്

തീരദേശ പരിപാലന നിയമം ലംഘിച്ച് അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചുമാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചിരുന്നു ഇതിന്റെ സമയപരിധി അവസാനിച്ചതോടെയാണ് ഫ്ളാറ്റിലെ താമസക്കാർ റിവ്യൂ ഹർജി നൽകിയത് സംസ്ഥാന ഗവൺമെന്റ് പുനപരിശോധന ഹർജി നൽകില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു

മീ

മീ

വരെ വേഗതയിലും കാറ്റ് വീശാൻ സാധൃതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

അറബിക്കടലിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന് സമീപത്തായി നാളെയോ മറ്റ്ന്നാളോ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്

മീ അകലെ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് പടിഞ്ഞാട്ടൻ തീരത്തടുക്കാൻ സാധൃതയില്ലെങ്കിലും പ്രദേശത്ത് കാറ്റിന് ശ്ക്തി കൂടാനിടയുള്ളതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

എസ്

പേട്ട സ്വദേശി രാധാകൃഷ്ണൻ നെടുമങ്ങാട് സ്വദേശി പ്രസന്ന കുമാരി എന്നിവരാണ് പുലർച്ചെ മരിച്ചത് പൊട്ടിയ വൈദ്യുതകമ്പി വീണ് കിടന്ന വെള്ളക്കെട്ടിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത്

തിരുവനന്തപുരത്തെ സൈബർ ഡോം ആസ്ഥാനത്തെത്തിയ ഇന്റർപോൾ പ്രതിനിധികളുമായി നോഡൽ ഓഫീസർ എ

ജി

കേരള പോലീസ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ പി ഹണ്ടിന്റെ വിജയത്തെ തുടർന്നാണ് ഇന്റർപോൾ അധികൃതർ കേരളത്തിലെത്തിയത് അനേഷണത്തിൽ സഹകരിക്കാനും കേരള പോലീസിന് ഇന്റർപോളിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകാനും തീരുമാനമായി

അർബുദ രോഗ ബാധയെ അതിജീവിച്ച് വീണ്ടും കളിക്കളത്തിൽ തിരിച്ചെത്തിയ യുവ്രാജ് സിംഗ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾ റൌണ്ടർമാരിലൊരാളാണ് ഫുൾ ജാർ സോഡ വയനാട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിൽപ്പന നടത്തുന്ന ഫുൾ ജാർ സോഡയെക്കുറിച്ചുളള പരാതിയും സംശയവും ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് പരിശോധന തുടങ്ങി ഭക്ഷ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൽപ്പറ്റ ടൌണിൽ നടത്തിയ പരിശോധനയിൽ യാതൊരു ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഫുൾ ജാർ സോഡ വിൽപ്പന നടത്തുന്നതെന്ന് കണ്ടെത്തി ഉപഭോക്താക്കൾ വൃത്തിയും ശുചിത്വവുമുളള സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും മാത്രമേ ഇവ വാങ്ങാൻ പാടുളളു എന്ന് അധികൃതർ മുന്നറിയിപ്പ് നല്കി